പാർലമെന്റിന്റെ ശൈതൃകാല സമ്മേളനത്തിന് തുടക്കം ശബരിമല വിഷയത്തിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് കേരള നിയമസഭ ഇന്നും സ്തംഭിച്ചു

ജെ

അടുത്ത പൊതു തിരഞ്ഞെടുപ്പിനു മുമ്പുള്ള പാർലമെന്റിന്റെ സമ്പൂർണ സമ്മേളനമാണ് ഇന്ന് ആരംഭിച്ചത്